ശബരിമല തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കണമെന്ന് ഹൈക്കോടതി

ശബരിമലയിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ഡി ജി പിയും ദേവസ്വം ബോർഡൂം സ്ത്യവാങ്മൂലം സമർപ്പിക്കണം

ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് സാവകാശം ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി

മത്സ്യത്തൊഴിലാളികൾക്ക് നാവിക് ഉപകരണങ്ങളും സാറ്റ്ലൈറ്റ് ഫോണും നൽകാനുളള പദ്ധതി അംഗീകരിച്ച് ഗവൺമെന്റ് ഉത്തരവായി

ഛത്തീസ്ഗഢിൽ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ

ജി പിക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയത് സന്നിധാനത്ത് വലിയ നടപ്പന്തലിൽ ഭക്തർക്ക് പൂർണ്ണമായും നിയന്ത്രണം പാടില്ല

നെയ്യഭിഷേകത്തിന് എത്തുന്ന ഭക്തരെയും ഇറക്കിവിടാൻ പാടില്ല

വെള്ളിയാഴ്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു

ടടടടടടടട ശബരിമല പോലീസ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സൌകര്യത്തിനും വേണ്ടിയാണെന്ന് പോലീസ് തീർത്ഥാട്ടകർക്ക് സുഗമമായി സന്നി ധാനത്ത് എത്തി പ്രാർത്ഥിക്കുന്നതീനും നെയ്യഭിഷേകം നടത്തുന്നതിനും സഹായത്തിനായി പോലീസിന്റെ നേതൃത്വത്തിൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുളള മേഖല പോലീസിന്റെ പൂർണ്ണനിയന്ത്രണത്തിലാണ് വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ടു പ്രതിനിധി ബിജി വർഗ്ഗീസ്

സ്ത്രീകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യം ഇല്ലാത്തതിനാൽ വിധി നടപ്പാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് അധികൃതരുമായും നിയമവിദഗ്ധരുമായും ആലോചിച്ച ശേഷമാണ് ദേവസ്വം ബോർഡ് സാവകാശ ഹർജി സമർപ്പിച്ചത്

സംസ്ഥാന ഗവൺമെന്റും പോലീസും ചേർന്ന് പ ശബരിമലയെ യുദ്ധഭൂമിയാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ടടടടടടടട മുഖ്യമന്തി ശബരിമല വിഷയത്തിൽ യാതൊരു പിടിവാശിയുമില്ലെന്നും ഗവൺമെന്റ് വിശ്വാസികൾക്കൊപ്പമാണെന്നും മുഖ്യന്ത്രി പിണറായി ് വിജയൻ

ശബരിമലയിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയത് സാധാരണ ഭക്തരെയല്ല കുഴപ്പമുണ്ടാക്കാൻ വരുന്നവർക്ക് ഒപ്പം നിൽക്കാൻ പോലീസിനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഭക്തരെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് എന്ത് അധികാരമാണ് ഉളളതെന്നും ഗവൺമെന്റിന്റെ ഈ നീക്കത്തെ യു ഡി എഫ് ശക്തമായി നേരിടുമെന്നും അദ്ദേഹം യു ഡി എഫ് യോഗത്തിനു ശേഷം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

പോലീസ്ട് നീയന്ത്രണം മൂലം ഭക്തർ അനുഭവിക്കുന്ന നരകയാതനക്ക്ൾ കോൺഗ്രസ് നിയോഗിച്ച മൂന്നംഗ ദൌത്യസംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നെന്ന് ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞു

പിന്നീട് പോലീസെത്തി യുവതികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി

ആവശ്യമായ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ഓഖി ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ടെത്തും

പ്രാരംഭഘട്ടമെന്ന നിലയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ വ്യക്തികൾക്കാണ് ധനസഹായം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു

സുഗമമായ വോട്ടെടുപ്പിന് എല്ലാ

കൂടുതൽ വിവരങ്ങളുമായി ആൻണി മുനിയറ

ശബരിമലയിൽ ഭക്തരെ അറസ്റ്റ് ചെയ്യുന്നില്ല ശബരിമല വിഷയം സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

സി സി വർക്കിംഗ് പ്രസിഡണ്ട് കെ

ശബരിമലയിൽ പ്രാഥമിക സൌകര്യം ഒരുക്കുന്നതിൽ പോലും പൂർണ്ണ പരാജയമാണെന്നും ദേവസ്വം ബോർഡ് പിരിച്ചു വിടണമെന്നും കെ സുധാകരൻ പറഞ്ഞു ഹരിതകേരളം ശിൽപശാല ഹരിതകേരളം മിഷന്റെയും വ്യാവസായിക പരിശീലന വകുപ്പി ന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഐ ടി ഐ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

ഫാസിസത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയെന്ന് ശ്രീ മുല്ലപ്പളളി രാമചന്ദ്രൻ അനുസ്മരിച്ചു

ചീഫ് സെക്രട്ടറി ടോം ജോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു